ഇന്നത്തെ സ്റ്റാർട്ടപ്പൂകൾ നാളത്തെ ബഹുരാഷ്ട്ര കമ്പനികളാ ണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പുതിയ ഐഐഎം കാമ്പസ് ഒറീസയുടെ മഹത്തായ പൈതൃകത്തെ പ്രതിനിധീകരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

എന്ന ആഗോളവിപണിയിൽ ഇന്ത്യ ഉയർത്തിയെടുക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

രാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ചു പരിചയ സമ്പന്നനായ രാഷ്ട്രീയ പ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ശബ്ദമുയർത്തിയ നേതാവായിരുന്നു ബൂട്ടാ സിങ് എന്ന് പ്രധാനമന്ത്രി അനുസ് മരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് ഡ്രൈ റൺ നടന്നത്

വാക്സിൻ വിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും അദ്ദേഹം പരിശോധിച്ചു വാക്സിൻ വിതരണത്തിലെ അപാകതകൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണ് ഡ്രൈ റണ്ണിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര മന്ത്രി നേരത്തെ വൃക്തമാക്കിയിരുന്നു വാക്സിൻ ലഭ്യമാകുമ്പോൾ സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനം വിലയിരുത്തുക യാണ് നടപടിയുടെ പ്രധാനലക്ഷ്യം വാക്സിൻ വിതരണം ഒഴികെയുള്ള മറ്റെല്ലാ നടപടികളും ഉൾപ്പെടുത്തിയാണ് ഡ്രൈ റൺ സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത്

ഇതനുസരിച്ച് സിനിമാ തിയേറ്ററുകൾ അടുത്ത ചൊവ്വാഴ്ച മുതൽ തുറക്കാം മാനദണ്ഡങ്ങൾ പാലിച്ച് പകുതി സീറ്റുകളിൽ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാവൂ

പൊലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഇക്കാരൃം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കെ വിമാന സർവ്വീസുകൾ ഈ മാസം എട്ട് മുതൽ പുനരാരംഭിക്കും ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനം ബ്രിട്ടണിൽ വർദ്ധിക്കുന്നത് കണക്കിലെടുത്തായിരുന്നു വിമാന സർവ്വീസുകൾ നിർത്തി വച്ചത്

മുംബൈ ഹൈദരാബാദ് ഡൽഹി വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവ്വീസുകൾ

നിലവിൽ ലക്ഷദ്വീപിലേക്കു യാത്ര തിരിക്കുന്നതിന് മുൻപ് കൊച്ചിയിൽ പത്തുദിവസം ഇൻസ്റ്റിട്യൂഷണൽ ക്വാറന്റൈനിനു ശേഷം പരിശോധന നെഗറ്റീവ് ആയവർ ദ്വീപുകളിൽ എത്തിയാൽ വീണ്ടും ഏഴു ദിവസത്തെ ഹോം കാറന്റൈനെലും ഇരിക്കണമെന്ന നിബന്ധനകളിലാണ് ഇളവ് നൽകിയത്

കാണാതായ കുട്ടികളെ കണ്ടെത്തി പുനരധിവസിപ്പിക്കാനുള്ള ഓപ്പറേഷൻ മുസ്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിൽ തദ്ദേശ ഭരണകൂടം ഡിസംബർ ഒന്നിനാണ് ആരംഭിച്ചത്

ഇത് സംബന്ധിച്ച് കൈക്കൊണ്ട നട്ടപടികളെക്കുറിച്ച് രണ്ട് ആഴ്ചയ് ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു

പാക്ക് സർക്കാറിന്റെ ഭാഗത്തു നിന്നും സുതാര്യമായ അന്വേഷണത്തിന് ഉത്തരവുണ്ടാകണ മെന്ന് കേന്ദ്ര വിദേശകാരൃ മന്ത്രാലയം ആവശ്യപ്പെട്ടു അന്വേഷണ റിപ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറണ മെന്നും ഇന്ത്യ നിർദ്ദേശിച്ചു

കമ്പനികൾക്ക് ചൈനീസ് മിലിട്ടറിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ചൈന മൊബൈൽ ബ്ലൈഫ് ടെലികോം ചൈന യൂണികോം ഹോങ്കോങ് എന്നീ മൂന്ന് കമ്പനികളെയാണ് ഒഴിവാക്കുന്നത്

തായ്വാൻ പ്രവിശ്യയിലേയ്ക്കുള്ള ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ തുടർച്ചയാ യുള്ള നുഴഞ്ഞു കയറ്റത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ